എസ് എം

എ മാരും രാജിവച്ചു

പട്ടികയിൽ

അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി അടിയന്തിര യോഗം ചേരും

ഗൌരവമായി കാണണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ഇതിൽ സംശയ്മൂള്ളവർ ഇന്ത്യാക്കാരുടെ കഴിവിനെ സംശയിക്കുന്നവരാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഭാവി ലക്ഷ്യമിട്ട് പുതിയ ഇന്ത്യ കെട്ടിപ്പടുക്കുക എന്നതാണ് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബജറ്റിന്റെ ലക്ഷ്യമെന്നും ശ്രീ മോദി പറഞ്ഞു വാരാണസിയിൽ ബി ജെ പിയുടെ ദേശവ്യാപക അംഗത്വ വിതരണത്തിന് തുടക്കമിട്ട് സംസാരിക്കവെയാണ് പ്രധാനമന്ത്രി ഇക്കാരൃങ്ങൾ പറഞ്ഞത് അഞ്ച് പേർക്ക് പാർട്ടി അംഗത്വം നൽകികൊണ്ടാണ് ശ്രീ മോദി അംഗത്വ വിതരണത്തിന് തുടക്കമിട്ടത്

ശ്യാമപ്രസാദ് മുഖർജിയുടെ ജന്മവാർഷിക ദിനത്തിലാണ് ബി ജെ പി അംഗത്വ വിതരണത്തിന് തുടക്കം കുറിച്ചത് ഉത്തർപ്രദേശ് ഗവൺമെന്റിന്റെ വൃക്ഷത്തെ നടീൽ പ്രവർത്തനങ്ങൾക്ക് വാരാണസിയിൽ വൃക്ഷത്തൈ നട്ട് കൊണ്ട് പ്രധാനമന്ത്രി തുടക്കമിട്ടു മുൻ പ്രധാനമന്ത്രി ലാൽബഹദൂർ ശാസ്ത്രിയുടെ പ്രതിമയും ശ്രീ മോദി അനാവരണം ചെയ്തു

എ മാരും മൂന്ന് ജെ ഡി എസ് എം

എമാരും രാജി വച്ചതിനെ തുടർന്ന് കർണാടകയിലെ സഖ്യ ഗവൺമെന്റ് കൂടുതൽ പ്രതിസന്ധിയായി

എൽ എ മാരുടെ രാജിക്കത്ത് തന്റെ സെക്രട്ടറിക്ക് ലഭിച്ചതായി നിയമസഭാ സ്പീക്കർ രമേഷ് കുമാർ സ്ഥിരീകരിച്ചു ഏതാനും ദിവസം മുമ്പ് കോൺഗ്രസ്സിന്റെ ആനന്ദ് സിംഗ് എം

എ സ്ഥാനം രാജിവച്ചിരുന്നു

ഡി എസിന് പിന്തുണ നൽകുകയായിരുന്നു

അമേരിക്കയുടെ അഭ്യർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ് സംഘടനയുടെ ഭരണസമിതി യോഗം ചേരുന്നത് സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരിക്കുന്നതിനുള്ള പരിധി ഇറാൻ ലംഘിച്ചതായി നേരത്തേ കണ്ടെത്തിയിരുന്നു

രാജ്യത്തിന്റെ അഖ്ണ്ഡതയ്ക്കും ഐക്യത്തിനും വേണ്ടിയുള്ള ശ്യാമപ്രസാദ്ദ് മുഖർജിയുടെ സംഭാവനകൾ എക്കാലവും സ്മരിക്കപ്പെടുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

ജെ പി അധ്യക്ഷനും ആഭ്യന്തര മന്ത്രിയുമായ അമിത്ഷായും ഡോ

ത്യാഗത്തിന്റേയും ദേശസ്നേഹത്തിന്റെയും സമർപ്പണത്തിന്റെയും പ്രതീകമാണ് ഡോ ശ്യാമപ്രസാദ് മുഖർജിയെന്നും അദ്ദേഹത്തിന്റെ ജീവിതം രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതായിരുന്നുവെന്നും ശ്രീ അമിത്ഷാ അഭിപ്രായപ്പെട്ടു ജവഹർലാൽ നെഹ്റു മന്ത്രിസഭയിൽ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന ഡോ

അമേരിക്കൻ കോർപ്പറേറ്റ് മേഖലയും സിംഗപൂർ ബാങ്കും ബജറ്റിനെ പ്രശംസിച്ച് മുന്നോട്ട് വന്നു കൂടുതൽ വിവരങ്ങളുമായി സുനീഷ്

അമേരിക്കൻ ക്ലെനികളെ നിക്ഷേപത്തിന് പ്രോത്സാഹിപ്പിക്കുന്നതാണ് ബജ്റ്റ്ന്ന് യു എസ് ഇന്ത്യ തന്ത്രപരമായ പങ്കാളിത്ത വേദിയുടെ പ്രസിഡ്ഡിന്റ് മു്കേഷ് ആഗി പറഞ്ഞു ഇന്ത്യൻ വിപണി തുറന്നിട്ടിരിക്കുകയാണ് വളർച്ചയും പുരോഗതിയും ഉറപ്പ് വരുത്തുന്നതാണ് ബജറ്റി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഘടനാപരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു പുതിയ ഗവൺമെന്റിന്റെ പുരോഗമനപരമായ കാഴ്ചപ്പാടാണ് ബജറ്റിൽ പ്രതിഫലിക്കുന്നതെന്ന് യു

എസ് ഇന്ത്യ വാണിജ്യ സംഘടന പ്രസിഡന്റ് കരുൺ റിഷി പറഞ്ഞു തൊഴിലവസരങ്ങളും വർദ്ധിപ്പിക്കും ബജറ്റ് മാറ്റങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്ന് സിംഗപ്പൂർ ബാങ്ക് വൃത്തങ്ങൾ പറഞ്ഞു അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ക്ഷേമം ഉറപ്പാക്കാനും കേന്ദ്ര ബജറ്റ് പ്രയോജനപ്രദമാണെന്ന് സിംഗപൂർ ആസ്ഥാനമായ ഡി ബി എസ് ഗ്രൂപ്പിന്റെ സാമ്പത്തിക കാര്യ വിദഗ്ദ്ധ രാധിക റാവു പ്രതികരിച്ചു

കൃഷിവകുപ്പിന്റെ കേര കേരളം സമൃദ്ധകേരളം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട്ട് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി

കർഷകരിൽ പ്രസിന്നും തേങ്ങ സംഭരിക്കാൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു

ആരോഗ്യമേഖലയ്ക്ക് രാജ്യം നൽകുന്ന പ്രാധാന്യത്തെയാണിത് സൂചിപ്പിക്കുന്നതെന്ന് ആരോഗൃമന്ത്രി ഡോ

കാലവർഷം രാജ്യത്തെ മിക്ക ഭാഗങ്ങളിലുമെത്തിയതായി ക്ഷെത്ത്ൻ കാലാവസ്ഥാ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥനാിയ് ്ക് എം

എന്നാൽ പടിഞ്ഞാറൻ രാജസ്ഥാനിലും പഞ്ചാബിലെ ചില ഭാഗങ്ങളിലും കാലവർഷം എത്താനിരിക്കുന്നതേയുള്ളൂ

ഇവിടങ്ങളിൽ മഴ അടുത്ത രണ്ടോ മൂന്നോ ദിവസം കൂടി ഇങ്ങനെ തുടരുമെന്നാണ് കാലവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ നിഗമനം

ശ്രീലങ്കയ്ക്കുവേണ്ടി ഏഞ്ചലോ മാത്യൂസ് സെഞ്ചറി നേടി

രണ്ടാം മത്സരത്തിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ബാറ്റിംഗ് തെരഞ്ഞെടുത്തു

ജയശങ്കറും ബി ജെ

ശ്രീ ജയശങ്കർ കോൺഗ്രസ്സ് സ്ഥാനാർത്ഥി ഗൌരവ് പാണ്ഡ്യയെ പരാജയപ്പെടുത്തിയപ്പോൾ ശ്രീ താക്കൂർ കോൺഗ്രസ്സിന്റെ തന്നെ ചന്ദ്രിക ചുദാസ്മയെ തോൽപ്പിച്ചു

ജെ

ബിഹാർ ഉപ മുഖ്യമന്ത്രി സുശീൽകുമാർ മോദിയാണ് ശ്രീ രാഹുൽഗാന്ധിക്കെതിരെ കേസ് നൽകിയത് മോദിയെന്ന പേരുമായി ബന്ധപ്പെട്ട് ശ്രീ രാഹുൽഗാന്ധി നടത്തിയ പരാമർശമാണ് കേസിനാധാരം

തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന രണ്ടു ബസ്സുകൾ കൂട്ടിയിടിച്ചാണ് അപകടം